വിക്രം ലാൻഡറു മായുള്ള ആശയവിനിമയം നഷ്ടമായതായി ഐ എസ് ആർ

ശാസ്ത്രജ്ഞരോട് സൈര്യം മുന്നേറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ എട്ട് മണിക്ക് പ്രധാനമൃത്തി രാജ്ച്യത്തെ അഭിസംബോധന ചെയ്യും ദൌത്യത്തിൽ പങ്കെടുത്ത ശാസ്ത്രിജ്ഞരെ അഭിനന്ദിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിലെ ആദ്യസെമിയിൽ ഡാനിൽ മെദ്വെദേവിന് ജയം

എസ്

സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചു വരികയാണ് വോയിസ് റഫ് ബ്രേക്കിംഗിനു ശേഷം ഫൈൻ ലാൻഡിങ്ങിനിടെ സാങ്കേതിക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതോടെയാണ് വിക്രം ലാൻഡറിന്റെ ലാൻഡിംഗ് പ്രക്രിയ തടസപ്പെട്ടത് വിക്രം ലാൻഡർ നിശ്ചിതപാതയിൽ നിന്നും വ്യതിചലിച്ചതോടെയാണ് സിഗ്നലുകൾ ലഭിക്കാതായത്

രാജ്യം ശാസ്ത്രജ്ഞരെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബംഗളൂരുവിലെ ഐഎസ്ആർഒ കേന്ദ്രത്തിൽനിന്നായിരിക്കും അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുക

ആകാശവാണിയുടെ എഫ് എം ഗോൾഡ് റെയിൻബോ ചാനലുകളും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും

മുംബൈയിൽ മൂന്ന് മെട്രോ പാതകൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും

മെട്രോ ഭവനും പ്രധാനമന്ത്രി തറക്കല്ലിടും

പി മാർ തങ്ങളുടെക്ട്രപ്പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഫിറ്റ് ഇന്ത്യ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടി പ്രത്പാടികൾ സംഘടിപ്പിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബ്ലീർള ് ഇന്നലെ പാർലമെന്റ് മന്ദിരത്തിൽ ഫിറ്റ് ഇന്ത്യ ഡ്രൈവ് ഉദ്ഘാട്നം ചെയ്യുകയായിരുന്നു അദ്ദേഹം കായികക്ഷമതയോടെയും പൂ ആരോഗ്യത്തോടെയും ഇരിക്കാൻ എം പിമാർ തങ്ങളുടെ മണ്ഡലങ്ങളില്ലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യണമെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു

ജസ്റ്റിസുമാരായ ദീപക് ഗുപ്തയും അനിരുദ്ധ ബോസും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉന്നാവോ പീഡനക്കേസിലെ പെൺകുട്ടിക്കുണ്ടായ അപകടം സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഇക്കാരൃം ആരാഞ്ഞത് ഈ കേസിൽ രണ്ടാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ സുപ്രീംകോടതി സിബിഐയോട് നിർദ്ദേശിച്ചു

ഗോയലിന്റെ മുംബൈയിലെ വസതിയിലും കമ്പനിയിലുമടക്കം പന്ത്രണ്ടോളം ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തിയിരുന്നു

ഡി അറിയിച്ചു

മൂസ്റ്റ് ട്ടിവസത്തെ ചർച്ചയിൽ അടിസ്ഥാന സൌകര്യം ഊർജ്ജം സാ്ങ്കേതിക വിദ്യ ഔഷധ നിർമ്മാണം തുടങ്ങിയ മേഖലക്ക്ളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും

രാജ്യരക്ഷാ മന്ത്രിയുടെ ദക്ഷിണ കൊറിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ചു രൂപരേഖ തയ്യാറായത്

ഹോൾഡ് ഇന്ത്യൻ കൊറിയൻ പ്രതിരോധ വ്യവസായ വകുപ്പുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ ഇന്നലെ സോളിൽ അഭിസംബോധന ചെയ്യവേയാണ് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇക്കാര്യം വൃക്തമാക്കിയത്

ഇറക്കുമതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇന്തൃയിൽ സാമ്പത്തിക മായി ലാഭകരവും തദ്ദേശീയമായി ഉല്പാദിപ്പിക്കുന്ന ഉല്പന്നങ്ങളെ കണ്ടെത്താൻ ഒരു ദ്രുതകർമ്മസേന രൂപീകരിക്കുമെന്ന് ശ്രീ

നിക്ഷേപവും സംയുക്ത സംരംഭങ്ങളും സുഗമമാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും രാജ്യരക്ഷാ മന്ത്രി കൊറിയൻ വ്യവസായികൾക്ക് ഉറപ്പ് നൽകി പിന്നീട് സോളിലെ ഇന്ത്യൻ എംബസി നൽകിയ സ്വീകരണത്തിൽ ഇന്ത്യൻ ദക്ഷിണ കൊറിയൻ പ്രതിരോധ വൃവസായ തലവന്മാരെ ശ്രീ

ഇന്ത്യയുടെ പ്പ്തിരോധ ഇടനാഴി കളിൽ നിക്ഷേപം നടത്താൻ ഗവൺമെന്റ് സ്ക്ടിട്ട്യി്ക്കുമെന്നും നയപ്രകാരം എല്ലാ ഇളവുകളും നൽകുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് ദക്ഷിണകൊറിയൻ വൃവസായ ത്ലൂവന്മാർക്ക് ഉറപ്പ് നൽകി

കൊൽക്കത്തയിൽ ബംഗാൾ മേഖലാ റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി

ടി സംവിധാനത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് യഥാസമയം അറിയിച്ച് പരിഹരിക്കണ മെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു

തേനീച്ച കൃഷി കന്നുകാലി വളർത്തൽ ഹോർട്ടികൾച്ച്ർ തുടങ്ങിയ മേഖലകളിൽ കർഷകർ മികവ് തെളിയിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

മന്ത്രി പി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പാലിന്റെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്

ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലെർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്

അഫ്ഗാൻ സമാധാനം സംബന്ധിച്ച് യുഎസും താലിബാനും ചേർന്നു കരടു കരാർ തയാറാക്കിയിരുന്നു സമാധാനക്കരാറിലെ കരടു വ്യവസ്ഥകളെക്കുറിച്ച് ഗനിയും ട്രംപും ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്

ഗ്രിഗോർ ദിമിത്രോവിനെയാണ് മെദ്വെദേവ് പരാജയപ്പെടുത്തിയത്

ഇതോടെ മെദ്വെദേവ് യു എസ് ഔപ്പൂജ് പുരുഷ സിംഗിൾസ് ഫൈനലിലെത്തുന്ന ആദ്യ റഷ്യൻ താരമായി റാഫേൽ നദാലും ഇറ്റലിയുടെ മാറ്റോ ബറേറ്റിനിയുമായുള്ള രണ്ടാം സെമി പുരോഗമിക്കുകയാണ്

നാല് ദിവസം നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പ്രമുഖ അത്ലറ്റിക് താരങ്ങൾ പങ്കെടുക്കും